എൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിംഗ്സിനെ പരാജയപ്പെടുത്തി വാർത്തകൾ വിശദമായി കോവിഡിനെതിരായ വാക്സിൻ വികസിപ്പിക്കുന്നതിൽ ഇന്ത്യ മുന്നിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു തദ്ദേശീയമായി മുപ്പതിലധികം വാക്സിനുകൾ വികസിപ്പിക്കുന്നുണ്ടെന്നും ഇതിൽ മൂന്നെണ്ണത്തിൽ ഏറെ മുന്നേറി കഴിഞ്ഞുവെന്നും പ്രധാനമന്ത്രി അറിയിച്ചു ഗ്രാന്റ് ചലഞ്ചേഴ്സ് ആനുവൽ മീറ്റിംഗിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു പ്രധാനമന്ത്രി പൌരന്മാരുടെ പ്രതിരോധം ഉറപ്പുവരുത്തുന്നതിന് ഡിജിറ്റൽവത്കൃത ശൃംഖലയോടൊപ്പം ഡിജിറ്റൽ ആരോഗ്യ ഐഡിയും ഉപയോഗപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

ദിനംപ്രതി കോവിഡ് ബാധിക്കുന്ന രോഗികളുടെ എണ്ണവും വളർച്ചാനിരക്കും കുറഞ്ഞുവരികയാണ്

കോവിഡ് ബാധയുടെ തുടക്കത്തിൽ ലോക്ഡൌൺ ഏർപ്പെടുത്തിയതും മാസ്കുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിച്ചതും കാര്യക്ഷമമായി സമ്പർക്കം കണ്ടെത്താനായതും റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റ് നേരത്തെ ആരംഭിച്ചതും ഇതിന് സഹായകമായെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു മൂന്നുദിവസത്തെ സമ്മേളനത്തിൽ ശാസ്ത്രജ്ഞരും ഗവേഷകരും വിവിധ വിഷയങ്ങളിൽ ഓൺലൈനായി പാനൽ ചർച്ചകളും അനൌപചാരിക സംഭാഷണങ്ങളും നടത്തും ദേദ സംസ്ഥാനത്ത് കോവിഡ് മൂലം മരണനിരക്ക് കുറവാണെന്നും കോവിഡ് വ്യാപനം അതിന്റെ ഉച്ചസ്ഥായിയിലെത്തുന്ന സമയത്തും മരണ നിരക്ക് കുറയുന്നതായാണ് കാണുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു രോഗം ഉച്ചസ്ഥായിയിൽ എത്തുന്ന അവസ്ഥ പരമാവധി വൈകിപ്പിക്കുക എന്ന നയമാണ് സംസ്ഥാനം സ്വീകരിച്ചതെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ദ്ദേ ലോകത്തെ മുഴുവനായി ഗ്രസിച്ച ഒരു മഹാമാരിയുടെ കാലത്ത് എത്ര ജീവനുകൾ രക്ഷിക്കാൻ സാധിച്ചു എന്നും അതിനായി എന്തൊക്കെ ചെയ്തു എന്നതുമാണ് പ്രധാനമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മനുഷ്യരുടെ ജീവൻ ജീവിതോപാധികൾ ആരോഗ്യ സംവിധാനങ്ങൾ എന്നീ മൂന്ന് ഘടകങ്ങളെ ചേർത്ത് നിർത്തിയും അവയെ സംരക്ഷിച്ചും ശാക്തീകരിച്ചും മഹാമാരിയെ ചെറുക്കുക എന്ന ശാസ്ത്രീയ സമീപനമാണ് കേരളം സ്വീകരിച്ചത്

കോവിഡ് പ്രതിരോധത്തിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ ഓണാവധിക്കാലത്ത് ഇളവുകൾ അനുവദിച്ചു എന്ന പ്രചാരണം വാസ്തവവിരുദ്ധമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ന്യൂസ്ഡെസ്ക് ആകാശവാണി ദര സംസ്ഥാനത്ത് ഇന്നലെയും കോവിഡ് രോഗികളേക്കാൾ കൂടുതൽ പേർ രോഗമുക്തരായി

ദേദ കോവിഡിന്റെ അതിരൂക്ഷമായ സമൂഹ വ്യാപനത്തിൽ നിന്ന് തിരുവനന്തപുരം ജില്ല കരകയറുന്നതായി ജില്ലാ കലക്ടർ ഡോക്ടർ നവ്ജ്യോത് ഖോസ അറിയിച്ചു

കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി തിരുവനന്തപുരത്ത് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം ആയിരത്തിൽ താഴെയാണെന്നും അവർ പറഞ്ഞു ഈ ദിവസങ്ങളിലെല്ലാം രോഗബാധിതരേക്കാൾ കൂടുതൽ പേർ രോഗമുക്തരായത് ആശ്വാസം നൽകുന്നുവെന്നും വരുംദിവസങ്ങളിലും ശക്തമായ നിയന്ത്രണങ്ങൾ തുടരുമെന്നും കലക്ടർ അറിയിച്ചു

ദേദ കോവിഡ് മഹാമാരി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ രോഗപ്രതിരോധത്തിന് ഊന്നൽ നൽകണമെന്ന് ഉദയംപേരൂർ അംബുജ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദിക് റിസർച്ച് ആന്റ് ഡോക്യുമെന്റേഷന്റെയും നവി മുംബൈ സിംസാർ മൾട്ടി സ്പെഷ്യാലിറ്റി ആയുർവേദ ആശുപത്രിയുടെയും മെഡിക്കൽ ഡയറക്ടറായ ഡോക്ടർ ദിലീപ്കുമാർ പി പി അഭിപ്രായപ്പെട്ടു

ഇതിന്റെ ഭാഗമായ ബോധവൽക്കരണ പോസ്റ്റർ ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ പതിച്ച് പ്രസിഡന്റ് കെ വി സുമേഷ് ഉദ്ഘാടനം ചെയ്തു

സിലിണ്ടറുമായി വീട്ടിലെത്തുന്ന ഡെലിവറി ബോയിക്ക് ഉപഭോക്താക്കൾ ഈ ഒ

യഥാർത്ഥ ഉപഭോക്താക്കൾക്ക് സിലിണ്ടർ ലഭിക്കാനും സബ്സിഡിയുടെ ദുരുപയോഗം തടയാനും ലക്ഷ്യമിട്ടാണ് പദ്ധതിയെന്ന് മന്ത്രി ആലപ്പുഴയിൽ പറഞ്ഞു ദ്ദേ പഴയകാല ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായകൻ പി ഗോപികുമാർ അന്തരിച്ചു

വാർധക്യസഹജമായ അസുഖങ്ങളെത്തുടർന്ന് ഇന്നലെ രാത്രി പാലക്കാട്ടായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം

ഹർഷബാഷ്പം മനോരഥം പിച്ചിപ്പൂ ഇവൾ ഒരു നാടോടി കണ്ണുകൾ തളിരിട്ട കിനാക്കൾ കാട്ടുപോത്ത് അരയന്നം തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ

ദേദ പാലക്കാട് കഞ്ചിക്കോട് മദ്യം കഴിച്ചു അവശനിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച രണ്ടു പേർ കൂടി മരിച്ചു

ഇതുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളജിലെ നഴ്സിംഗ് ഓഫീസറായ ജലജാദേവി അയച്ചതായി പറയുന്ന കാര്യങ്ങൾ കീഴ്ജീവനക്കാരെ ജാഗരൂഗരാക്കാൻ വേണ്ടി അവരുടെതന്നെ സൃഷ്ടി ആണെന്നും അവിടെ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് അവർതന്നെ രേഖാമൂലം വ്യക്തമാക്കിയിട്ടുണ്ടെന്നും വാർത്താ കുറിപ്പിൽ പറഞ്ഞു

പി ഇന്ന് വയനാട് കളക്ട്രേറ്റിൽ നടക്കുന്ന കോവിഡുമായി ബന്ധപ്പെട്ട യോഗത്തിലും കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ജില്ലാതല വികസന കോഓർഡിനേഷൻ മോണിറ്ററിംഗ് യോഗത്തിലും പങ്കെടുക്കും നാളെ ഉച്ചയ്ക്ക് മാനന്തവാടി ജില്ലാ ആശുപത്രി സന്ദർശിച്ച ശേഷം അദ്ദേഹം കണ്ണൂർ വിമാനത്താവളം വഴി ഡൽഹിയ്ക്ക് മടങ്ങും

എൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിംഗ്സിനെ ഏഴ് വിക്കറ്റിന് തോൽപ്പിച്ചു

ഇന്ന് കിംഗ്സ് ഇലവൻ പഞ്ചാബ് ദുബായിൽ ഡൽഹി ക്യാപ്പിറ്റൽസിനെ നേരിടും ദേദ സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് കാസർകോഡ് ജില്ലയിലെ മധൂരിൽ നിർമ്മിക്കുന്ന വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ മന്ത്രി ഇ

സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കാസർകോഡ് ജില്ലയിൽ നിയമനം ലഭിക്കുന്ന വനിത ഉദ്യോഗസ്ഥർ അനുഭവിക്കുന്ന താമസ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയാണ് ഹോസ്റ്റൽ നിർമ്മിക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു ദേദ ഇടുക്കി ജില്ലയിൽ പട്ടയ നടപടികളുമായി ബന്ധപ്പെട്ട് ചില വില്ലേജുകളുടെ പരിധിയിൽ ഇപ്പോൾ നടത്തുന്ന ഭൂ സർവ്വേയുടെ പേരിൽ വ്യക്തികളോ ജനകീയ സമിതികളോ പണപ്പിരിവ് നടത്തിയാൽ കർശന നടപടിയെടുക്കുമെന്ന് ജില്ലാ കലക്ടർ എച്ച്

ചിലയിടങ്ങളിൽ ജനകീയ സമിതികൾ രൂപീകരിച്ച് ചില തത്പരകക്ഷികൾ പണപ്പിരിവ് നടത്തുന്നതായി പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും കലക്ടർ പറഞ്ഞു

സമഗ്രശിക്ഷ ഇടുക്കി സമർപ്പിച്ച പദ്ധതി അംഗീകരിച്ചാണ് ഈ പ്രവർത്തനത്തിന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അനുമതി നൽകിയത്